സമൃദ്ധി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കുറഞ്ഞു

പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ എഴുപതാം പതിപ്പ് നാളെ

രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിങ് തെരഞ്ഞെടുത്തു

രാജ്യത്തെ ഏറ്റവും വലിയ ഹൃദയ ആശുപത്രി യുഎൻ മെഹ്ത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്റർ ജുനഗഡിലെ ഗിർനർ ഹിൽ റോപ്പ് വേ പദ്ധതി തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി ഇന്ന് നാടിനു സമർപ്പിച്ചത്

ലോകത്തിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര റോപ്പ്വേ പദ്ധതിയാണ് ഗിർനർ ഹിൽ റോപ്പ് വേ

കർഷകരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉറപ്പാക്കാൻ കിസാൻ സൂര്യോദയ പദ്ധതിക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗിർ സോമനാഥ് പടാൻ ദാഹോദ് ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്

അടുത്ത മൂന്നു വർഷത്തിനുള്ളിൽ കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് പഭ്ധതി വ്യാപിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പുനൽകി

സൌരോർജ്ജ പദ്ധതികൾ ഫലപ്രദമായി ഉപയോഗിക്കുന്ന മുൻനിര സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പകൽ സമയങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സൌരോർജം ജലസേചന ആവശൃങ്ങൾക്കായി കൃഷിയിടങ്ങളിൽ ലഭ്യമാക്കും

അന്നദാതാക്കളായ കർഷകരെ ഊർജ്ജദാതാവ് കൂടി ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്ന് ശ്രീ മോദി വ്യക്തമാക്കി ഇത്തരം നീക്കങ്ങൾ രാജ്യത്തെ കാർഷികരംഗത്തെ ശാക്തീകരിക്കുന്നതിന് സഹായകരമുാകും കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ആശുപത്രിയിലേക്ക്ാവശ്യമായ ജീവനക്കാരെ നിയമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കോവിഡ് രോഗികളെ ഉടൻ തന്നെ പ്രവേശിപ്പിക്കാനാവുമെന്നും മന്ത്രി അറിയിച്ചു ആശുപത്രി പ്രവർത്തനം ആരംഭിക്കാൻ കാലതാമസം വന്നു എന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നും ശ്രീമതി കെ കെ ശൈലജ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ഇത്തവണ രണ്ട് ദിവസമാണ് മഹാനവമിയുടെ ഭാഗമായുള്ള പൂജകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

വിവ്ധ്യ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ് പരിപാടികളിൽ പങ്കെടുത്തു ബിജെപി പ്രസിഡന്റ് ജെ

നദ്ദ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ജെ

നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ എന്നിവർ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് പ്രചാരണയോഗങ്ങളിൽ സംസാരിച്ചു

നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ്സ് നേതാവും ചത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ചന്ദ്ര ബഘേൽ എന്നിവർ മഹാസഖ്യത്തിനു വേണ്ടിയും യോഗങ്ങളിൽ പങ്കെടുത്തു

ജെ

കഴിഞ്ഞ ദിവസങ്ങളിൽ താനുമായി സമ്പർക്കം പുലർത്തിയവരോട് പരിശോധനക്ക് വിധേയരാകാനും അദ്ദേഹം നിർദേശിച്ചു

മൻ കി ബാതിന്റെ എഴുപതാം പതിപ്പാണിത് തുടർന്ന് പ്രാദേശിക ഭാഷകളിലും പരിഭാഷയുണ്ടാകും

എം എസ് എം ഇ വായ്പകൾ വിദ്യാഭ്യാസ ഭവനനിർമ്മാണ വാഹന സ്വകാരൃ വായ്പകൾ മുടങ്ങിയ ക്രെഡിറ്റ് കാർഡ് അടവുകൾ എന്നിവയ്ക്ക് ഈ ഇളവ് ലഭിക്കും

ജയശങ്കർ

വികസ്വര ലോകത്തിന്റെ ശബ്ദമാവാനും സമകാലിക വിഷയങ്ങളിൽ ആഗോളതലത്തിൽ അഭിപ്രായ ഐക്യം സൃഷ്ടിക്കാനും ഇന്ത്യ ശ്രമിക്കും വലിയു രാജ്യങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം പിന്തൂടരുന്നത് ബഹുരാഷ്ട്രതയെ അപകടത്തിലാക്കുമെന്നും ശ്രീ ജയ്ശിങ്കർ പറഞ്ഞു

ഇ

എച്ച് എസ് മാർക്കിറ്റ് ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യ എനർജി ഫോറം സെറവീക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാക്കി നിലനിർത്തുന്ന സേന ധീരതയ്ക്കും മനക്കരുത്തിനും സ്ഥിരോത്സാഹത്തിനും പേര് കേട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു

വടക്കിൻ ക്കശ്മീരിലെ കുപ്പാര ജില്ലയിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപ്ത്തുള്ള കേരൻ മേഖലയിലാണ് കാഡ് കോപ്റ്റർ സൈന്യം വെടിവെച്ചു വീഴ്ത്തിയത്

ജൽജീവൻ ദൌത്യത്തിന് കീഴിൽ ശുദ്ധജലത്തിന്റെ ഗുണമേന്മ പരിശോധിക്കുന്ന കേന്ദ്രങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു